ദക്ഷിണാഫ്രിക്കയുമായി അടുത്ത സ്ഹകരണത്തിന് ഭാരതം പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൾ രാമഫോസയുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തി

രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമിയിൽ കേരളത്തിന് ഇന്നിംഗ്സ് തോൽവി

ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ ഞായറാഴ്ച നടക്കുന്ന പുരുഷ സിംഗിൾസ് ഫൈനലിൽ ലോക ഒന്നാം നമ്പർ താരം നൊവാക് ജോക്കോവിച്ച് ര ാം സീഡ് റഫേൽ നദാലിനെ നേരിടും

ഏഇക്കാരൃത്തിൽ ലോകത്തിന് തന്നെ മാതൃകയാണ് ഭാരതമെന്നും ്യ രാഷ്ട്രപതി പറഞ്ഞു വൈവിധ്യം ജനാധിപത്യം വികസനം എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന സവിശേഷമായ സംസ്കാര്മാണ് ഭാരതത്തിന്റേതെന്നും ശ്രീ കോവിന്ദ് പറഞ്ഞു എഴുപതാമത് റീപ്പ്ണ്ക്കിക് ദിനത്തിന് മുന്നോടിയായി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം മുന്നാക്കവിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് ഗവൺമെന്റ് ജോലിയ്ക്കും വിദ്യാഭ്യാസത്തിനും പത്ത് ശതമാനം സംവരണം നൽകുന്ന ഭരണഘടനാ ഭേദഗതി വികസനത്തിന്റെ മറ്റൊരു നാഴിക കല്ലാണെന്നും ഇത് മഹാത്മാഗാന്ധിയുടേയും ഇന്ത്യൻ ജനതയുടേയും സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമാണെന്നും ശ്രീ കോവിന്ദ് പറഞ്ഞു പുരുഷൻമാരെപോലെ സ്ത്രീകൾക്കും തുലൃസ്വാതന്ത്രൃം അനുഭവിക്കാൻ അവകാശമുടെ ന്നും രാജൃത്ത് ദരിദ്രരുടെ ശബ്ദത്തിനാണ് കൂടുതൽ ശക്തിയെന്നും അതിൽ അടിസ്ഥാനമില്ലെന്നുമുളള മഹാത്മാഗാന്ധിയുടെ കാഴ്ചപ്പാടിന്റെ പൂർത്തീകരണമാണ് ഭരണഘടനയിൽ വരുത്തിയ ഭേദഗതിയെന്നും ശ്രീ കോവിന്ദ് പറഞ്ഞു തെരഞ്ഞെടുപ്പ് എന്നത് രാഷ്ട്രീയ വ്യായാമമല്ലെന്നും പുരോഗതിയിക്കും പ്രവർത്തനത്തിനുമായുളള കൂട്ടായ ആഹ്വാനമാണെന്നും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന്യത്തെ മുൻനിർത്തി ശ്രീ കോവിന്ദ് പറഞ്ഞു

ധീരതയ്ക്കുള്ള പ്രസിഡന്റിന്റെ പോലീസ് മെഡൽ സി

ജീവൻരക്ഷാ പതക് മൂന്ന് വിഭാഗ്രങ്ങളിലാണ് നൽകുന്നത്

ദക്ഷിണാഫ്രിക്കൻ സന്ദർശനം വളരെ നിർണ്ണായകമാണെന്നും വ്യാപാരവും നിക്ഷേപവുമായി ബന്ധപ്പെട്ട എല്ലാ ഉഭയകക്ഷി പ്രശ്നങ്ങളും ചർച്ചചെയ്തതായും പ്രധാനമന്ത്രി പറഞ്ഞു

ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് പുതിയ മാനങ്ങൾ സൃഷ്ടിക്കുന്നതിന് ചർച്ച കാരണമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ഭാരതവുമായുള്ള ബന്ധത്തിന് തന്റെ രാജ്യം വലിയ പ്രധാന്യമാണ് കൊടൂക്കുന്നതെന്നും ഉഭയകക്ഷി ബന്ധങ്ങൾ ശാക്തീകരിക്കുന്നതിന് വലിയ സാധ്യതകൾ നിലനിൽക്കുന്നുവെന്നും രാമഫോസ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി

ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനം അവസാനിച്ചതുമുതലുള്ള ഈ ബന്ധം പിന്നീട് കൂടുതൽ ശക്തമായി തീർന്നു ദക്ഷിണാഫ്രിക്കയുടെ ജനാധിപത്യ സംവിധാനത്തെ അംഗീകരിച്ച ആദ്യ രാജ്യങ്ങളിലൊന്നാണ് ഭാരതം ദക്ഷിണാഫ്രിക്കയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിന് പിന്തുണയും പ്രോത്സാഹനവും നൽകിയ ഭാരതത്തിലെ ജനങ്ങൾക്ക് രാമഫോസ നന്ദി പറഞ്ഞു

ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിലായി പ്രക്ഷേപണം ചെയ്യുന്ന ഈ പ്രത്യേക പരിപാടി എഫ് എം ഗോൾഡ് ചാനലിൽ കേൾക്കാവുന്നതാണ്

ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ ഇരുപതിടങ്ങളിൽ സിബിഐ സംഘം ഇന്ന് പരിശോധന നടത്തി ഹൃരിയ്ാന്യിലെ റോഹ്ത്തക്കിലുള്ള ഭൂപീന്ദരിന്റെ വസതിയിലും സിബിഐ ഉദ്യോഗസ്ഥരുടെ സംഘം പരിശോധന നടത്തി പരിശോധ്യന ഇപ്പോഴും തുടരുകയാണ്

സിബിഐ റെയ്ഡിനെതിര്ര കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ആനന്ദ്ശർമ്മ പ്രതികരിച്ചതിനെ ബിജെപി നിശിതമായി വിമർശിച്ചു ഈ വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടിയുടെ സമീപനമെന്തെന്ന് ശർമ്മയുടെ വ്യക്തമാക്കുന്നതാണ് ആനന്ദ് വാക്കുകളെന്ന് ന്യൂഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബിജെപി മാധ്യമവക്താവ് സംബിത് പത്ര പറഞ്ഞു

ചരിത്രത്തിൽ ആദ്യമായാണ് കേരളം രഞ്ജി ട്രോഫിയിൽ സെമിയിൽ കളിച്ചത് സൌരാഷ്ട്ര കർണ്ണാടക മത്സരത്തിലെ വിജയികളാണ് ഫൈനലിൽ വിദർഭയുടെ എതിരാളികൾ

ഇന്നു നടന്ന സെമി ഫൈനലിൽ ലുക്കാസ് പൌളിയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് നൊവാക് കലാശക്കളിക്ക് യോഗൃത നേടിയത്

നാളെ നടക്കുന്ന വനിതാ സിംഗിൾസ് ഫൈനലിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ പെട്രോകിറ്റോവ ജപ്പാന്റെ നവോമി ഒസാക്കയെ നേരിടും

ദേശീയ സമ്മതിദായക ദിനാഘോഷത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ സംഘടിപ്പിച്ച സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ വോട്ടർമാർ എന്ന നിലയിൽ ഇവർക്ക് അഭിമാനിക്കാമെന്നും ശ്രീ കോവിന്ദ് പറഞ്ഞു